ചീഫ് സെക്രട്ടറി ഡി ജി പി വകുപ്പ് സെക്രട്ടറിമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു

രാത്രി അദ്ദേഹം ഡൽഹിക്ക് പോകും നാളെ ചേരുന്ന സി

എം പോളീറ്റ്ബ്യൂറോ യോഗത്തിലും പിണറായി വിജയൻ പങ്കെടുക്കുന്നുണ്ട് സിക്കിമിലെ ആദ്യ വിമാനത്താവളം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു ഗ്യാങ്ടോകിൽ നിന്ന് ദ്ദ കിലോമീറ്റർ അകലെയാണ് പൈകോങ് ഗ്രീൻഫീൽഡ് വിമാനത്താവളം

രാജ്യത്തെ നൂറാമത് വിമാനത്താവളം കൂടിയാണ് ഇത്

പായ്വഞ്ചിയിൽ നിന്ന് മത്സ്യബന്ധനകപ്പലിലേക്ക് മാറ്റിയശേഷം അദ്ദേഹത്തെ നാവികസേനയുടെ കപ്പലിലേക്ക് കൊണ്ടുപോകാനാണ് ഇപ്പോഴത്തെ തീരുമാനം മത്സ്യബന്ധനക്കപ്പലിൽ നിന്ന് സോഡിയാക് ബോട്ടിൽ രക്ഷാപ്രവർത്തകർ എസ് വി തുരിയ പായ് വഞ്ചിക്കടുത്തേക്ക് എത്താൻ ശ്രമിക്കുക യാണെന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്

പ്രത്യേക ഉദ്ദേശ്യത്തോടു കൂടി തന്നെ കുടുക്കാനാണ് കേസ് കെട്ടിച്ചമച്ചതെന്നും ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീയ്ക്കെതിരെ നേരത്തെ നടപടിയെടുത്തിലെ വൈരാഗൃം തീർക്കാനാണ് പരാതി നല്കിയതെന്നും ജാമ്യഹർജിയിൽ പറയുന്നു പാലാ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പൊലീസ് ഫ്രാങ്കോ മുളയ്ക്കലിനെ ഹാജരാക്കുന്നത്

സി ബി ഐ അന്വേഷണത്തിന് മതിയായ കാരണമില്ലെന്നും ഹർജി പിൻവലിക്കുന്നില്ലെങ്കിൽ തളളുമെന്നും ക്യോടതി വൃക്തമാക്കിയതിനെ തുടർന്നാണ് പരാതിക്കാരൻ ഹർജി പിൻവലിച്ചത് പൊലീസിനെ സ്വതന്ത്രമായി അന്വേഷിക്കാൻ അനുവദിക്കണമെന്നും കോടതി പറഞ്ഞു

ഫ്രാങ്കോ മുളയ്ക്കലിനെ അറസ്റ്റു ചെയ്തതായി ഗവൺമെന്റ് ഹൈക്കോടതിയെ അറിയിച്ചു

ബിഷപ്പിന്റെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമർപ്പിച്ച രണ്ട് ഹർജികളും കോടതി തീർപ്പാക്കി

എഫ് ഐ വനിത നേതാവ് നൽകിയ പീഡന പരാതിയിൽ സിപി ഐ എം അന്വേഷണ സംഘം പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകരിൽ നിന്നും ഡി

എഫ് ഐ ജില്ലാകമ്മിറ്റിയംഗങ്ങളായ രണ്ടുപേരിൽനിന്നും കാഞ്ഞിരപ്പുഴയിലെ രണ്ട് സി

എം

ബി ജെ പി എം എൽ എ മാരായ നിലേഷ് കാബ്രാൾ മിലിന്ദ്നായിക് എന്നിവർ വൈകീട്ട് നാലിന് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും രോഗബാധിതരായി ആശുപത്രിയിൽ കഴിയുന്ന നഗരവികസന മന്ത്രി ഫ്രാൻസിസ് ഡിസുസ ഊർജ്ജമന്ത്രി പാണ്ഡുരംഗ് മദ്കൈകർ എന്നിവരെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയാണ് ഇവരെ മന്ത്രിമാരാക്കുന്നത്

കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച ഐക്യരാഷ്ട്ര കൺവൻഷന്റെയും മനുഷ്യാവകാശ ത്തിന്റെയും ലംഘനമാണ് അഞ്ച് വയസ്സിനും പത്ത് വയസ്സിനുമിടയിൽ നടത്തുന്ന ചേലാകർമ്മമെന്ന് ഹർജിയിൽ പറയുന്നു

ജാതിസംവർണം ചോദ്യംചെയ്ത് സമർപ്പിച്ച രണ്ട് ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും ജാതിസംവരണം അവസാനിപ്പിച്ച് സാമ്പത്തിക സംവരണം കൊണ്ടുവരണമെന്ന് ആവശ്യപ്പെട്ട് നായർസർവീസ് സൊസൈറ്റിയും വൈശ്യക്ഷേമ സമിതിയുമാണ് ഹർജികൾ സമർപ്പിച്ചത് ചീഫ് ജസ്റ്റിസ് ദീപക്മിശ്ര അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുന്നത്

നേരത്തെ ഈ ആവശ്യമുന്നയിച്ച് കമ്മീഷന് പാർട്ടി നിവേദനം നല്കിയിരുന്നു പ്രമുഖ നേതാക്കളടങ്ങിയ പ്രതിനിധിസംഘം അല് പ സമയത്തിനകം കമ്മീഷൻ ആസ്ഥാനത്തെത്തും

സാമ്പത്തികരംഗത്തെ ഇപ്പോഴത്തെ മാറ്റങ്ങൾ സൂക്ഷ്മമായി വിലയിരുത്തിവരികയാണെന്നും വൈകാതെ തന്നെ പരിഹാര നടപടികൾ സ്വീകരിക്കുമെന്നും റിസർവ് ബാങ്കും സെബിയും നേരത്തെ തന്നെ നിക്ഷേപകരെ അറിയിച്ചിട്ടുണ്ട്

രാജേഷ് എം

അടിയന്തരഘട്ടങ്ങളിൽ ദുരന്തബാധിതപ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്താൻ സംഘത്തിന് ഫയർഫോഴ്സ് രക്ഷാപ്രവർത്തനത്തിൽ പ്രത്യേക പരിശീലനം നൽകും ലക്കകകകകകകകകകകകകക ബി സി സ്റ്റി ഐ മുൻ അധ്യക്ഷൻ ബി എൻ ദത്ത് കൊൽക്കത്തയിൽ അന്തരിച്ചു

ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു

ജില്ലാ കളക്ടർ ജില്ലാ പോലീസ് മേധാവി ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ എന്നിവർ മൂന്നാഴ്ചക്കകം സംഭവത്തെ കുറിച്ച് വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം കെ

മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി

വാർധകൃ സ്ഹജമായ അസുഖങ്ങളാണ് മരണകാരണമെന്ന് വൃദ്ധസദനം അധികൃതർ അറിയിച്ചു സംഭവത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് യു ഡി എഫ് പ്രവർത്തകർ വൃദ്ധസദനത്തിലേക്ക് മാർച്ച് നടത്തി

തൃശൂർ ഗുരുവായൂർ തൃശൂർ തൃശൂർ കോഴിക്കോട് പാസഞ്ചറുകളാണ് നാളെ മുതൽ സർവ്വീസ് പുനരാരംഭിക്കുന്നത് ലലലലലലലലലലലല പൊന്നാനിയിൽ കഞ്ചാവ് വേട്ടക്കിടയിൽ എക്സൈസ് ഓഫീസർമാരെ കുത്തി പരിക്കേൽപ്പിച്ച് പ്രതികൾ വിലങ്ങുമായി രക്ഷപ്പെട്ടു എക്സൈസ് ഇൻസ്പെക്ടർ സെബാസ്റ്റ്യൻ പ്രിവന്റീവ് ഓഫീസർ ജാഫർ എന്നിവർക്കാണ് കുത്തേറ്റത്

പ്രതികൾക്കായി അന്വേഷണം ഊർജ്ജിതമാക്കി

ബസും ബൈക്കും കൂട്ടിയിടിച്ച് രണ്ട് ബൈക്ക് യാത്രികരും ബൈക്കുകൾ കൂട്ടിയിടിച്ച് ഒരാളുമാണ് മരിച്ചത്

ഐലക്കാട് ഷെയ്ക്ക് സയ്യിദ് ഇസ്ലാമിക് ആർട്സ് കോളജിലെ വിദ്യാർത്ഥി മൂവാറ്റുപുഴ മുളവൂർ സ്വദേശി റാഷിദ് ആണ് മരിച്ചത് റാഷിദിനെ രക്ഷിക്കാനായി കിണറ്റിലിറങ്ങിയ രണ്ട് സഹപാഠികളെ

പടനായർകുളങ്ങര സ്വദേശിനി അർച്ചനയാണ് മരിച്ചത്

മലപ്പുറം ചുള്ളി സ്വദേശി ജാവേദ് അലിയാണ് മരിച്ചത്

തൂത്തുക്കുടി സ്വദേശി കന്യമ്മയാണ് മരിച്ചത്

കാട്ടുമൃഗങ്ങളുടെ ശലൃമുളള പ്രദേശത്ത് കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെയും മറ്റും പിടികൂടാൻ നാട്ടുകാർ സ്ഥാപിച്ച കെണിയിലാണ് പുലി കുടുങ്ങിയത്